സി വേണുഗോപാൽ

ഇടതു മുന്നണി സ്ഥാനാർഥി കളായ സി ദിവാകരൻ പി ജയരാജൻ പി കെ ശ്രീമതി എ പ്രദീപ്കു മാർ പി രാജീവ് എ എം ആരിഫ് എ സമ്പത്ത് ഇന്നസെന്റ് എന്നി വർ പത്രിക നൽകിയവരിൽ ഉൾപെടുന്നു

ഡി എഫിലെ എം കെ രാഘവനും ഷാനിമോൾ ഉസ്മാനും പുറമെ ബി

പി ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രനും ഇന്നലെ പത്രിക നൽകി വ്യാഴാഴ്ച യാണ് സംസ്ഥാനത്ത് നാമനിർദേശ പത്രിക സമർപ്പണം തുടങ്ങിയ ത് ഏപ്രിൽ നാല് വരെ പത്രിക നൽകാം ഏപ്രിൽ എട്ടാണ് പത്രിക പിൻവലിക്കാവുന്ന അവസാന ദിവസം വയനാട്ടിൽ രാഹുൽഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വ കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് എഐസിസി ജന്റൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറിയിച്ചു ഇക്കാര്യത്തിൽ രാഹുൽഗാന്ധി വാക്കുനൽകിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു സ്ഥാനാർഥി തീരുമാനം വൈകുന്നതിൽ പാർട്ടിയുടെയും യുഡി എഫിന്റെയും നേതാക്കൾ നേരിടുന്ന ബുദ്ധിമുട്ട് അദ്ദേഹത്തെ അറി യിച്ചതായും വേണുഗോപാൽ വെളിപ്പെടുത്തി അതിനിടെ രാഹുൽഗാന്ധി തെക്കേ ഇന്ത്യയിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കുമെന്ന് ഡൽഹി റിപ്പോർട്ടു കൾ പറയുന്നു കോൺഗ്രസ് മുഖ്യവക്താവ് രൺദീപ് സുർജേവാല രാവിലെ പത്തരയ്ക്ക് ഡൽഹിയിൽ വിളിച്ചിരിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം അറിയിച്ചേക്കു മെന്നാണ് സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തെ അഞ്ഞൂറോളം കേന്ദ്ര ങ്ങളിൽ കർഷകരും പ്രൊഫഷണലുകളും വിദ്യാർഥികളും ഉൾപ്പെടെ ജനങ്ങളുമായി വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ സംവദിക്കും

കരയിലും ആകാശത്തും മാത്രമല്ല ബഹി രാകാശത്തും കാവൽക്കാരനാണെന്ന് പ്രധാനമന്ത്രിപരാമർശിച്ചെന്ന് കമ്മീഷന് നൽകിയ കത്തിൽ യെച്ചൂരി കുറ്റപ്പെടുത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത നരേന്ദ്രമോദിയുടെ നടപടി തെരഞ്ഞെ ടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമല്ലെന്ന് വെള്ളിയാഴ്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു തൊടുപുഴയിൽ ഇന്ന് ലോക്സഭാ ത്രെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഒപ്പ് മതിൽ പരിപാടി സംഘടിപ്പിക്കും ചലച്ചിത്ര നടൻ ഗിന്നസ് പക്രു വൈകിട്ട് മതിലിൽ ഒപ്പ് രേഖപ്പെടുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്യും സ്ഥാനാർഥിയെ അധിക്ഷേപിച്ചു എന്നാരോപിച്ച് തിരൂർ മലയാള സർവകലാശാലയിലേക്ക് മഹിളാമോർച്ച പ്രവർത്തകർ മാർച്ച് നട ത്തി വോട്ട് ചോദിക്കാനെത്തിയ എൻ ഡി എ സ്ഥാനാർഥിയെ അധ്യാപകൻ അവഹേളിച്ചതായി മാർച്ച് ഉദ്ഘാടനം ചെയ്ത മഹിളാ മോർച്ച സംസ്ഥാന സെക്രട്ടറി നിവേദിത കുറ്റപ്പെടുത്തി നാഷണൽ സെക്കുലർ കോൺഫറൻസ് ഇന്ത്യൻ നാഷണൽ ലീഗിൽ ലയിച്ചു കോഴിക്കോട്ട് ചേർന്ന സമ്മേളനത്തിൽ എൻ

എഫ് കൺവീനർ എ വിജയരാഘവൻ സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനടക്കം നേതാക്കളും മന്ത്രിമാരും ചട ങ്ങിൽ പങ്കെടുത്തു കാസർകോട് കല്ല്യോട്ട് കൊല്ലപ്പെട്ട ശരത്ലാലിന്റെയും കൃപേ ഷിന്റെയും ഓർമ്മകളിൽ പെരിയയിൽ അമ്മമാർ പ്രാർഥനാ സംഗമം നടത്തി

കൊല നടത്തിയവർക്ക് അർഹിക്കുന്ന ശിക്ഷ കിട്ടാനാണ് പ്രാർഥനയെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്ത മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ലതികാ സുഭാഷ് പറഞ്ഞു തൊടുപുഴയിൽ അമ്മയുടെ സുഹൃത്തിന്റെ ക്രൂര പീഡനത്തിന് ഇരയായ കുട്ടിയുടെ നില അതീവഗുരുതരമായി തുടരുന്നു കോല ഞ്ചേരി മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ വെന്റിലേറ്റർ സഹാ യത്തോടെയാണ് കുട്ടിയുടെ ജീവൻ നിലനിർത്തിയിരിക്കുന്നത് കേസിൽ അറസ്റ്റിലായ പ്രതി അരുൺ ആനന്ദിനെ കുമാര മംഗ ലത്തെ വാടക വീട്ടിലെത്തിച്ച് പൊലിസ് തെളിവെടുപ്പ് നടത്തി ഇടുക്കി കോടതി പ്രതിയെ രണ്ടാഴ്ചത്തേയ്ക്ക് റിമാൻഡ് ചെയ്തി രിക്കുകയാണ് സമാനതകളില്ലാത്ത ക്രൂരതയാണ് തൊടുപുഴയിൽ കുട്ടിയ്ക്ക് നേരെ നടന്നതെന്ന് ശിശുക്ഷേമ സമിതി വൃക്തമാക്കി പ്രതിയ്ക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്ന് സമിതി ആവശ്യപ്പെട്ടു ആഗോളതാപനം നിയന്ത്രിക്കുകയും ഊർജം സംരക്ഷിക്കുകയും ചെയ്യുകയെന്ന സന്ദേശത്തോടെ ഇന്നലെ ഇരുന്നൂറോളം രാജ്യങ്ങ ളിൽ ഭൌമ മണിക്കൂർ ആചരിച്ചു രാത്രി എട്ടര മുതൽ ഒമ്പതര വരെ വിളക്കുകൾ അണച്ചായിരുന്നു ഭൌമ മണിക്കൂർ ആചരണം

സുൽത്താൻ അസ്ലൻഷാ ഹോക്കിയിൽ ഇന്ത്യക്ക് പരാജയം മലേഷ്യയിലെ ഇപ്പോയിൽ നടന്ന ഫൈനലിൽ ദക്ഷിണ കൊറിയ ഷൂട്ടൌട്ടിൽ ഇന്ത്യയെ രണ്ടിനെതിരെ നാല് ഗോളിന് പരാജയപ്പെടു ത്തി നിശ്ചിത സമയത്ത് ഇരുടീമുകളും ഓരോ ഗോളടിച്ച് സമനില പാലിച്ചതിനെ തുടർന്നാണ് മത്സരം ഷൂട്ടൌട്ടിലേക്ക് നീണ്ടത് ഐപിഎൽ ക്രിക്കറ്റിൽ കിങ്സ് ഇലവൻ പഞ്ചാബിന് ജയം മൊഹാലിയിൽ മുംബൈ ഇന്ത്യൻസിനെ എട്ടു വിക്കറ്റിനാണ് പഞ്ചാബ് തോൽപിച്ചത് ഡൽഹിയിൽ മറ്റൊരു മത്സരത്തിൽ ഡൽഹിയ ക്യാപ്പിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ പരാജയപ്പെടുത്തി മൂന്ന് റൺസിനാണ് ഡൽഹിയുടെ വിജയം ് സംസ്ഥാനത്ത് ഇന്നും കനത്ത ചൂടിനും സൂര്യാതപത്തിനും സാധ്യ തയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി വയ നാട് ഒഴികെ ജില്ലകളിൽ പകൽ താപനില ശരാശരിയിൽ നിന്ന് രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെ ഉയരുമെന്നാണ് വിലയിരുത്തൽ

കാസർകോട് കുമ്പളയിൽ സ്കൂൾ വാർഷികാഘോഷത്തിൽ പങ്കെടുത്ത രണ്ടു വിദ്യാർഥികൾക്ക് സൂര്യാതപമേറ്റു ഇവർക്ക് കുമ്പള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ നൽകി

ആരുടെയും പൊള്ളൽ ഗുരുതരമല്ലെന്ന് അധികൃതർ അറിയി ച്ചു

ഗവൺമെന്റ് നിർദേശങ്ങൾ അവഗണിച്ച് കൊടുംചൂടിൽ തൊഴി ലാളികളെ പണിയെടുപ്പിക്കുന്നത് ശ്രദ്ധയിൽപെട്ടിട്ടുണ്ടെന്നും അത്ത രക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും എറണാകുളം ജില്ലാ കലക്ടർ മുഹമ്മദ് വൈ സ്ഫീറുള്ള അറിയിച്ചു തൊഴിലുടമ കൾക്കും പണിയെടുപ്പിക്കുന്നവർക്കുമെതിരെ ക്രിമിനൽ കേസെടു ക്കാനാണ് നിർദേശം തൊഴിൽ വകുപ്പ് സ്കാഡുകൾ പരിശോ ധന ശക്തമാക്കുമെന്നും കലക്ടർ പറഞ്ഞു ഫീസടക്കാത്തിന്റെ പേരിൽ രണ്ടാം ക്ലാസിലെ രണ്ട് കുട്ടികളെ വെയിലത്ത് നിർത്തിയ സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മിഷൻ ആലുവ കരിമല്ലൂരിലെ അൺഎയ്ഡഡ് സ്കൂളിനെതിരെ കേസെടുത്തു സ്കൂൾ മാനേജ്മെന്റിൽ നിന്നും വിദ്യാഭ്യാസ വകു പ്പിൽ നിന്നും ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയിട്ടുണ്ട് വെയി ലേറ്റ് കുഴഞ്ഞു വീണ ഒരു വിദ്യാർഥിയെ ആശുപത്രിയിൽ പ്രവേ ശിപ്പിച്ചിരുന്നു നടപടി നേരിട്ട മറ്റൊരു കുട്ടിക്ക് കാഴ്ചാവൈകല്യവു മുണ്ട്

നിർധനരായ കാൻസർ വൃക്ക രോഗികൾക്കും ലുക്കീമിയ ബാധിച്ച കുട്ടികൾക്കും വേണ്ടിയാണ് ഹെൽപിങ് ഹാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് കെയർഹോം നിർമിച്ച ത് നൂറുപേർക്ക് കെയർഹോമിൽ താമസസൌകര്യം ഒരുക്കിയിട്ടുണ്ട് അഖില കേരള വികലാംഗ ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം ഇന്ന് രാവിലെ കണ്ണൂർ ജൂബിലി ഹാളിൽ മന്ത്രി രാമചന്ദ്രൻ കട ന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും ഷൊർണൂർ ജങ്ഷൻ റെയിൽവേ സ്റ്റേഷൻ വഴി കടന്നു പോകുന്ന അഞ്ച് ദീർഘദൂര ട്രെയിനുകൾ നാളെ മുതൽ സ്റ്റേഷനിൽ പ്രവേ ശിക്കില്ല ദിവസവും സർവീസ് നടത്തുന്ന ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് തിങ്കൾ വ്യാഴം ദിവസങ്ങളിലെ തിരുവനന്തപുരം കോർബ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഞായർചൊവ്വ ബുധൻ ദിവ സങ്ങളിലെ തിരുവനന്തപുരം ഗോരഖ്പൂർ രപ്തി സാഗർ സൂപ്പർഫാ സ്റ്റ് വെള്ളിയാഴ്ചകളിലെ എറണാകുളം ബറോണി രപ്തി സാഗർ എക്സ്പ്രസ് ശനിയാഴ്ചകളിൽ സർവീസ് നടത്തുന്ന തിരുവനന്ത പുരം ഇൻഡോർ പ്രതിവാര എക്സ്പ്രസ് എന്നിവയാണ് ഷൊർണൂർ ജങ്ഷൻ സ്റ്റേഷനിൽ പ്രവേശിക്കാത്തത് ഈ ട്രെയിനുകളുടെ തിരികെ സർവീസും ഷൊർണൂരിലെത്തില്ലെന്ന് അധികൃതർ അറി യിച്ചു പത്ര സ്ഥാപനം അടച്ചുപൂട്ടുന്നതിന് മുമ്പ് ജീവനക്കാർക്കും തൊഴി ലാളികൾക്കും മതിയായ നഷ്ടപരിഹാര പാക്കേജ് ഉണ്ടാക്കണമെന്ന ബാധ്യത കോഴിക്കോട്ടെ തേജസ് ദിനപത്ര മാനേജ്മെന്റ് പാലിച്ചി ല്ലെന്ന് സിഐടിയു സംസ്ഥാന സെക്രട്ടറി എളമരം കരീം കുറ്റപ്പെ ടുത്തി നിയമപരമായ ആനുകൂല്യങ്ങൾ തീർത്തു നൽകാതെ സ്ഥാപ നത്തിന്റെ വസ്തുവകകൾ കൈമാറ്റം ചെയ്യുന്നത് നിയുമുപിരുദ്ധമാ ണെന്ന് അദ്ദേഹം പറഞ്ഞു ഏഴ് വർഷത്തെ ശമ്പള കുടിശ്ശിക ആവ ശ്യപ്പെട്ട് പത്രപ്രവർത്തക യൂനിയൻ സ്ഥാപനത്തിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എളമരം കരീം കേരളത്തിലെ ആദ്യത്തെ ബ്രെയിൽ പാർക്ക് ഇടുക്കി കെ

ബി ലൂയി ബ്രെയിൽ സ്മാരക അന്ധ വിദ്യാലയത്തിൽ ആരംഭി ച്ചു സംഘടനാ പ്രസിഡന്റ് കെ

കാഴ്ച വൈകല്യം നേരിടുന്നവർക്ക് പാർക്കില്ലെ എല്ലാ സാധന ങ്ങളും തൊട്ട് മനസിലാക്കാനും ആസ്വദിക്കാനും സാധിക്കും സാമൂഹ്യ പ്രവർത്തകൻ സന്തോഷ് സന്നിധാനമാണ് പാർക്ക് രൂപ കൽപന ചെയ്തത്

കുടിശ്ശിക പെൻഷൻ വിതരണം കാര്യക്ഷമമാക്കണമെന്ന് ജില്ലാ കമ്മിറ്റി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളോട് ആവശ്യപ്പെട്ടു തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കാർഗോ കോംപ്ലക്സിന് സമീപം കണ്ടെത്തിയ ഡ്രോൺ സി ഐ എസ്

ഇതുമായി ബന്ധപ്പെട്ട് ശ്രീകാര്യം സ്വദേശി നൌഷാദ് എന്നയാളെ പൊലീസ് കസ്റ്റഡിയിലെടുത്തതായി സൂചന യുണ്ട് മയക്കുമരുന്ന് വിൽപന നടത്തിയ മൂന്ന് യുവാക്കളെ പത്തനം തിട്ട വടശ്ശേരിക്കരയിൽ പൊലീസ് പിടികൂടി